സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവും സീറ്റ് വിഭജന ചിർച്ചകളും സജീവമാക്കി മുന്നണികൾ കോഴിക്കോട് ആറ് പ്യ്സ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രത്യി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ആശുപത്രിയിലെത്തി കുട്ടിയെ സന്ദർശിച്ചു ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസ്

രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് ഉയരുന്നു ലോകത്തെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് കോടിയിലേക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ യുവതലമുറയ്ക്ക് ബിസിനസ് അനായാസമാക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ഐ ഐ

കോടിക്കണക്കിന് ഇന്ത്യാക്കാരുടെ ജീവിതത്തിൽ മാറും കൊണ്ടുവരാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോളവത്കരണത്തോടൊപ്പം സ്വയംപര്യാപ്തതയും പ്രധാനമാണെന്ന പാഠമാണ് കോവിഡ് മഹാമാരി നമുക്ക് നൽകിയത്

തദ്ദേശ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെട്ടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് പ്രിഭ്ജന ചർച്ചകളും സജീവമാക്കി മുന്നണികൾ

ഐ എം സംസ്ഥാന സമിതിയും കെ

സി

തെരഞ്ഞെടുപ്പിൽ ഉടനീളം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് നിരീക്ഷണത്തിൽ ഉള്ളവർക്ക് തപാൽ വോട്ടിനുള്ള സൌകര്യമുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അതുകൊണ്ടു തന്നെ തദ്ദേശി തിരഞ്ഞെടുപ്പ് വിജയം ഓരോ പാർട്ടിക്കും നിർണായകമാണ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

അതേസമയം ആറ് വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ബാലുശ്ശേരി പൊലീസ് അറസ്റ്റ് ചെയ്ത യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു

ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്കിന് ് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസ്

സഭയുടെ അവകാശത്തിന്റ് മേലുള്ള കടന്നുകയറ്റമാണ് ഇ

നടത്തുന്നതെന്നും നോട്ട്ീസ്ിൽ ്പറയുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽക്കണം ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും

നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബിനീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന് സൂചനയുണ്ട്

മുരളീധരൻ കള്ളപ്പണക്കാർക്കെതിരെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടുവരുന്ന ധീരമായ നടപടികളുടെ ഗുണം കേരള സമൂഹവും കണ്ടുതുടങ്ങിയെന്ന് കേന്ദ്ര സഹമന്ത്രി വി

ജെ പി ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സ്പീക്കറും ബാലാവകാശ കമ്മീഷനും പദവിയുടെ മഹത്വം മറന്ന നിലപാടുകളാണ് കൈക്കൊണ്ടതെന്നും കേന്ദ്ര സഹമന്ത്രി ആരോപിച്ചു കമറുദ്ദീൻ ജല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം എം

എ

നാല് ഉന്നത പ്പൊലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് എം എൽ എ

ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിലാണ്

രോഗമുക്തിയിൽ മുന്നിലുള്ള ജില്ല തിരുവനന്തപുരമാണ്

കോവിഡ് സന്ദേശം ഇൻട്രോ കോവിഡ് പ്രതിരോധത്തിന് ആരോഗ്യ സംവിധാനവും സർക്കാരും ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തെന്നും ഇനി ജാഗ്രത പുലർത്തേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും സാഹിത്യകാരൻ സക്കറിയ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

എസ് എൽ വി

ആകാശവാണി ആലപ്പുഴ ആകാശവാണി ആലപ്പുഴ മീഡിയം വേവ് പ്രസരണി ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ അടച്ചുപൂട്ടാൻ പ്രസാർഭാരതി എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശൃം എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് റേഡിയോ ആൻറ് ടെലിവിഷൻ എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് ആർടി ആണ് ആവശ്യം ഉന്നയിച്ചത്

ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്ത് മായാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള അനുഗ്രഹീത നടനാണ് കമൽ ഹാസന്നെന്ന് മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു